എണ്ണത്തിൽ വർദ്ധന

മത്സരം ഇന്ന്

ഉഭയകക്ഷി സഹകരണം ഉൾപ്പെടെ യുള്ള വിഷയങ്ങൾ ചർച്ച ചെയ്യുന്ന ഇരുവരും പ്രാദേശിക ആഗോള വിഷയങ്ങളിലെ കാഴ്ചപ്പാടുകളും പങ്കുവയ്ക്കും

ഊഷ്മളവും സൌഹൃദപരവുമായ ബന്ധമാണ് ഇന്ത്യയും ഫിൻലൻഡും പങ്കുവയ്ക്കുന്നത് വ്യാപാര നിക്ഷേപം വിദ്യാഭ്യാസം നൂതനാശയ രൂപീകരണം ശാസ്ത്ര സാങ്കേതികവിദൃ ഗവേഷണ വികസന പ്രവർത്തനങ്ങൾ എന്നിവയിൽ അടുത്ത ബന്ധമാണ് ഇരു രാജ്യങ്ങളും പുലർത്തുന്നി്തു്

റെയിൽവേ വിദ്യാഭ്യാസ ആരോഗ്യ ഗതാഗത മന്ത്രാലയങ്ങളുട്ട് ധനാഭ്യർത്ഥനയ്ക്ക് മേലുള്ള വോട്ടിങ്ങും ഇന്ന് നടക്കും

ആരോഗ്യ ജീവനക്കാർക്കുള്ള ദേശീയ കമ്മീഷൻ സംബന്ധിച്ച ബില്ലും രാജ്യസഭ ഇന്ന് ചർച്ചയ്ക്ക് എടുക്കും

നാമനിർദ്ദേശ പത്രിക നൽകിയ സ്ഥാനാർത്ഥികൾ ഉൾപ്പെടെ വോട്ടു തേടി മണ്ഡലങ്ങളിൽ പര്യടനത്തിലാണ് സ്ഥാനാർത്ഥി പ്രഖ്യാപനം ആകാത്ത മണ്ഡലങ്ങളിലും പ്രവർത്തകർ പാർട്ടിതല പ്രചാരണങ്ങളിൽ സജീവമായി

എഫ് യു ഡി എഫ് എൻ

എ മുന്നണികളുടെ പ്രമുഖ ദേശീയ നേതാക്കൾ വരും ദിവസങ്ങളിൽ സംസ്ഥാനത്ത് പ്രചാരണത്തിന് എത്തുമെന്നാണ് സൂചന

അതിനിടെ പശ്ചിമ ബംഗാളിൽ തെരഞ്ഞെടൂപ്പ് പ്രചാരണം പുരോഗമിക്കുകയാണ് ബിജെപി ദേശീയ അദ്ധ്യക്ക്ഷൻ ജെ പി നദ്ദ ഇന്ന് റോഡ് ഷോയ്ക്ക് നേതൃത്വം നൽകും

വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ താര പ്രചാരകരും മുതിർന്ന നേതാക്കളും പ്രചാരണ രംഗത്തുണ്ട്

ജെ പിയിലെയും കോൺഗ്രസിലെയും മുതിർന്ന നേതാക്കളുടെ മക്കളും പ്രചാരണത്തിൽ സജീവമാണ്

ജനുവരിയിൽ ബോറിസ് ജോൺസൺ ഇന്ത്യ സന്ദർശിക്കാൻ പദ്ധതി ഇട്ടിരുന്നെങ്കിലും കോവിഡ് സാഹചര്യം മൂലം യാത്ര റദ്ദാക്കുകയായിരുന്നു

പാർലമെന്റിന്റെ സെൻട്രൽ ഹാളിൽ ഇന്ത്യൻ പാർലമെന്റംഗ ങ്ങളെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം

കോവിഡ് പ്രതിരോധവുമായി ബന്ധപ്പെട്ട ഇന്ത്യയുടെ പ്രവർത്തനങ്ങളെ അദ്ദേഹം അഭിനന്ദിച്ചു ഓരോ രാജൃങ്ങളുടെയും പാർലമെന്റ് തീരുമാനങ്ങളെ മറ്റു രാജ്യങ്ങൾ ബഹുമാനിക്കണമെന്ന് പചേകോയെ സ്വാഗതം ചെയ്തുകൊണ്ട് ലോക്സഭാ സ്പീക്കർ ഓം ബിർള പറഞ്ഞു ഇന്ത്യയുടെ ക്ഷണം സ്വീകരിച്ച് ഒരാഴ്ചത്തെ സന്ദർശനത്തിനെത്തിയതാണ് ഐ

എന്നാൽ ക്ട്രേളത്തിൽ രോഗ വ്യാപനം കുറയുകയാണെന്നും മന്ത്രാലയം ത്രുപ്പിയിച്ചു

ഹോട്ടലുകൾ റസ്റ്റോറന്റുകൾ തിയേറ്ററുകൾ എന്നിവിടങ്ങളിൽ പകുതി ആളുകളെ മാത്രമാവും അനുവദിക്കുക ഒത്തുകൂടലുകൾ കർശനമായും ലംഘിക്കുന്നവർക്കെതിരെ ദുരന്ത നിവരാണ ആക്ട് പ്രകാരമുള്ള നടപടികൾ സ്വീകരിക്കുമെന്നും മഹാരാഷ്ട്ര സർക്കാർ അറിയിച്ചു

നാഷണൽ സെന്റർ ഫോർ ഡിസീസ് കൺട്രോൾ ഡയറക്ടർ ഡോ

സിംഗ് നയിക്കുന്ന സംഘത്തിൽ എൻ സി ഡി സി

ക്ഷയരോഗ് നിർമാർജ്ജനത്തിനായി രാജ്യത്ത് വലിയ തോതിലുള്ള ബോധവത്കരണം ആവശ്യമാണെന്നും ഉപരാഷ്ട്രപതി പറഞ്ഞു

ദേശീയ വാക്സിനേഷൻ ദിനത്തോടനുബന്ധിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം സാംക്രമിക രോഗങ്ങളെ പ്രതിരോധിക്കാനുള്ള ഏറ്റവും നല്ല മാർഗ്ഗം വാക്സിനേഷനാണെന്നും അദ്ദേഹം പറഞ്ഞു

രാജൃത്തെ എല്ലാ ബാങ്ക് ശാഖകളിലും സേവന ലഭ്യമാക്കാനാണ് നിർദ്ദേശം

സുതാര്യതയും വിശ്വസ്തൃത്യും ്ഉറപ്പാക്കുന്നതിനാണ് വിവിപാറ്റ് സംവിധാനം ഏർപ്പെടുത്തുന്നത്

പ്രകടനക്കാരെ കൊലപ്പെടുത്തുകയും ഏകപക്ഷീയമായി അറസ്റ്റ് ചെയ്യു കയും തടവിൽ പീഡിപ്പിക്കുകയുമടക്കമുള്ള മനുഷ്യാവകാശ ലംഘന ങ്ങളാണ് മൃാൻമറിൽ നടക്കുന്നതെന്നും യു

സൈനിക അടിച്ചമർത്തൽ അവസാനിപ്പിക്കാൻ നടപടിയെടുക്കണമെന്ന് അദ്ദേഹം അന്താരാഷ്ട്ര സമൂഹത്തോട് അഭ്യർത്ഥിച്ചു

ന്വൂ മെക്സിക്കോയിൽ നിന്നുള്ള ഡെമോക്രാറ്റ് അംഗമായ ഡെബ് ഹാളണ്ട് റിപ്പബ്ലിക്കൻ അംഗങ്ങളുടെ ഉൾപ്പെടെ പിന്തുണയോടെയാണ് സ്ഥാനം നേടിയത്

അഹമ്മദാബാദിലെ നരേന്ദ്രമോദി സ്റ്റേഡിയത്തിലാണ് കളി നട ക്കുന്നത് ഗുജറാത്തിൽ കോവിഡ് വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ ഇനി മുതൽ കാണികൾക്ക് പ്രവേശനം അനുവദിക്കേണ്ട എന്ന് ഗുജറാത്ത് ക്രിക്കറ്റ് അസോസിയേഷൻ തീരുമാനിച്ചിട്ടുണ്ട്

സ്വർണ്ണവിലയിൽ മാറ്റമില്ല